അനുമതി നൽകാൻ വിദഗ്ധസമിതി ശുപാർശ

വിശ്വസിക്കരുതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി

ദേശീയ മെട്രോളജി കോൺക്ലേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും

ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മുംബൈ സിറ്റിക്ക് രണ്ട് ഗോൾ ജയം ഇന്ന് ഇൌസ്റ്റ് ബംഗാൾ ഒഡീഷയെയും എ ടി കെ ബഗാൻ നോർത്ത് ഇൌസ്റ്റിനെയും നേരിടും

ഓക്സ്ഫോർഡ് സർവ്വകലാശാല വികസിപ്പിച്ച് പൂനൈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡിന് അനുമതി നല്കാൻ സമിതി വെള്ളിയാഴ്ച ശുപാർശ നല്കിയിരുന്നു

വാക്സിന്റെ എല്ലാവശങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമേ സർക്കാർ വാക്സിന് അംഗ്ലീകാരം നൽകു മന്ത്രി പറഞ്ഞു

ഒരു കോടി ആരോഗ്യപ്രവർത്ത്കൂർക്കും രണ്ട് കോടിയോളം വരുന്ന കോവിഡ് മുന്നണി ക്യപ്പോരാളികൾക്കുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നല്കുക

കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ തയ്യാറെടുപ്പുകളുമായി കേന്ദ്ര സജീവമാണ്

ഒരു റിപ്പോർട്ട്

ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ്ട് ആശുപത്രി സ്വകാര്യ ആശുപത്രി എന്നിവ ഉൾപ്പെടെ ഓരോ ജില്ലയിലും മൂന്ന് കേന്ദ്രങ്ങളിൽ വീതമാണ് ഡ്രൈറൺ നടത്തിയത് റണ്ണിനോടനുബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലെയും ് ജീല്ലകളിലെയും ഉദ്യോഗസ്ഥർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു വാക്സിനേഷൻ ഡ്രൈവിനു വേണ്ടിയുള്ള കോ വിൻ ആപ്തിക്കേഷൻ കോവിഡ് വാക്സിൻ സൂക്ഷിക്കുന്നതിനുള്ള ശീതീകരണ സംവിധാനം എന്നിവയും കാര്യക്ഷമത വിലയിരുത്തുകയായിരുന്നു

സംസ്ഥാനം ജില്ല ബ്ലോക്ക് ആശുപത്രി തല ജീവനക്കാർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പു സംബന്ധിച്ച പരിശീലനം കൂടി ലക്ഷ്യമിട്ടായിരുന്നു ഡ്രൈറൺ സംഘടിപ്പിച്ചത് ഡ്രൈറൺ കുത്തിവയ്പിനെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേരിടാൻ വേണ്ട സജീകരണങ്ങളും കേന്ദ്രങ്ങളിൽ പരിശോധിച്ചു

ഡ്രൈറൺ ദിവസം ഉണ്ടായ വെല്ലുവിളികളെ സംബന്ധിച്ച ചർച്ചയും സംഘടിപ്പിച്ചു സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഡ്രൈറണ്ണിൽ സംതൃപ്തി അറിയിച്ചു

കേന്ദ്രസർക്കാരിന്റെ മാർഗനിർദ്ദേശമനുസരിച്ചുള്ള മുൻഗണൂർ പിട്ടിക പ്രകാരം വാക്സിൻ നല്കുമെന്ന് ആരോഗ്യമന്ത്രി കെ

അമേരിക്ക ഇന്ത്യ ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് രോഗബാധയിൽ മുൻപന്തിയിലുള്ളത് അമേരിക്കയിൽ മാത്രം രണ്ടു ലക്ഷത്തിലധികം പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്

അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ മോണിങ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ശ്രീ

ദേശീയ അറ്റോമിക് ടൈം സ്കെയിലും ഭാരതീയ നിർദ്ദേശക ദ്രവൃയും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും കൂടാതെ ദേശീയ പരിസ്ഥിതി സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്ക് പ്രധാനമന്ത്രി തറക്കില്ലിടും കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനും ചടങ്ങിൽ പങ്കെടുക്കും

അന്താരാഷ്ട്ര നിലവാരമനുസരിച്ച് ലബോറട്ടറികളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതാണ് ഭാരതീയ നിർദ്ദേശക് ദ്രവ്യ

അതേസമയം ഇന്നലത്തെ ജയത്തോടെ മുംബൈ സിറ്റി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി

തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് വിവരം കൈമാറുന്നതിനും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുതുന്നതിനും കരട് ഉത്തരവ് പ്രോത്സാഹനം നൽകുന്നു

പൊതു ജനങ്ങൾക്ക് ഓൺലൈനായി സന്ദർശന സമയം ബുക്ക് ചെയ്യാം

വാർധകൃ സഹജമായ അസുഖത്തെത്തുടർന്ന് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് സ്വകാരൃ ആശുപത്രിയിലായിരുന്നു അന്തൃം